ബോട്ടുകളും ഹെലികോ പ്ടറുകളും രക്ഷാ ഉപകരണങ്ങളും കൂടുതലായി ലഭ്യ മാക്കും

സംസ്ഥാനത്ത് ഇന്നലെയും ഇന്നുമായി അമ്പതിലേറെ മരണം

കേരളത്തിലെ പ്രളയ സാഹചര്യത്തിൽ രക്ഷാ പ്രവർത്തന ങ്ങൾ ഏകോപിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രസ ഹമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിന് നിർദ്ദേശം നൽകി ഉച്ച കഴിഞ്ഞ് കണ്ണന്താനം തിരുവനന്തപുരത്ത് എത്തും സെക്ര ട്ടറിയേറ്റിലെ കൺട്രോൾ റൂമിൽ പ്രളയ സാഹചര്യം നിരീക്ഷിച്ച് അദ്ദേഹം തുടർനടപടികൾ കൈക്കൊള്ളും ഇന്ന് രാവിലെ പ്രധാനമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയു മായും മുഖ്യമന്ത്രി പിണറായി വിജയൻ ടെലിഫോണിൽ ബന്ധ പ്പെട്ട് അടിയന്തിര സാഹചര്യം നേരിടാനാവശ്യമായ കൂടുതൽ സൈന്യത്തെ ആവശ്യപ്പെട്ടിരുന്നു ബോട്ടുകളും ഹെലികോപ്ട റുകളും നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൂടുതൽ ഹെലികോപ്ടറുകളും രക്ഷാ ഉപകരണങ്ങളും എത്തിക്കാമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതായി പിണറായി വിജയൻ മാധ്യമങ്ങളെ അറിയിച്ചു

വയനാട് ഇടുക്കി ജില്ലകളിൽ അതിശക്തമായ മഴയും ഉണ്ടായേക്കും പെരിയാറിന്റെയും ചാലക്കുടി പുഴയുടെയും തീരത്ത് താമ സിക്കുന്നവർ കുറേക്കൂടി ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യ മന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു രണ്ട് നദികളിലും ഒരു മീറ്റർകൂടി ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ നദികളിൽ നിന്ന് ഒരു കിലോമീറ്റർ വരെയെ ങ്കിലും അകലെ മാറി താമസിക്കുന്നതാണ് സുരക്ഷിതമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറി യിച്ചു വെള്ളപ്പൊക്കത്തെപ്പറ്റി ഭയപ്പാട് വേണ്ടെങ്കിലും വലിയൊരു ദുരന്തം തന്നെ യാണ് സംസ്ഥാനം നേരിടു ന്ന തെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം കൂടുതൽ ബോട്ടുകളും ഹെലികോപ്ടറുകളും ലൈഫ് ജാക്കറ്റുകളും നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്

കരസേനയുടെയും നാവികസേ നയുടെയും പ്രത്യേക സംഘങ്ങളെ ഉപകരണങ്ങൾ സഹിതം സംസ്ഥാനത്തേക്കയക്കാമെന്ന് പ്രധാനമന്ത്രിയും രാജ്യരക്ഷാ ആഭ്യന്തരമന്ത്രിമാരും ഉറപ്പ് നൽകിയിട്ടുണ്ട് രക്ഷാ പ്രവർത്ത നത്തിന് മത്സ്യത്തൊഴിലാളികളുടെ എഞ്ചിൻ ഘടിപ്പിച്ച ബോട്ടു കളും ആവശ്യമായി വരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

പാലക്കാട് ജില്ലയിലെ നെന്മാറ അളുവാശ്ശേരി ചേരുംകാട് ഉരുൾപൊട്ടി എട്ടുപേർ മരിച്ചു മൂന്ന് വീടുകൾ പൂർണ്ണമായി മണ്ണിനടിയിലാണ് ഇന്ന് പുലർച്ചെ ആതനാട് മലയുടെ തെക്കു ഭാഗത്തെ റബ്ബർ തോട്ടത്തിലേക്ക് മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു മണ്ണിനടിയിൽ കാണാതായ മൂന്നു പേർക്കായി തെരച്ചിൽ തുടരുകയാണ്

ശക്തമായ മഴയും കാറ്റും തുടരുക യാണ് അട്ടപ്പാടി സൈലന്റ് വാലിയ്ക്ക് സമീപം രണ്ടിടത്ത് ഉരുൾപൊട്ടി മൂന്നുപേരെ കാണാതായി കുന്തിപ്പുഴ പാലത്തിൽ ചരിത്രത്തിൽ ആദ്യമായി വെള്ളം കയറി അമ്പതോളം വീടു കൾ വെള്ളത്തിനടിയിലായി അട്ടപ്പാടി ചുരത്തിൽ മണ്ണിടിച്ചി ലിനെത്തുടർന്ന് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു മലപ്പുറം ഓടക്കയത്ത് ഉരുൾപൊട്ടി കാണാതായ ്രണ്ട് ആദിവാസി കൾക്കായി തെരച്ചിൽ തുടരുന്നു മുണ്ടേങ്ങാവിൽ തോണി മറിഞ്ഞ് ഒരു കുട്ടിയെ കാണാതായി

മാവൂർ ഊർക്കടവിൽ വീടിന്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞുവീണ് രണ്ട് കുട്ടികൾ മരിച്ചു

മൂന്നുപേർക്ക് പരി ക്കേറ്റു കൂടരഞ്ഞി പഞ്ചായത്തിലെ കൽപ്പനിയിൽ ഉരുൾപൊട്ടി രണ്ടുപേർ മരിച്ചു

ജില്ലയിൽ തിരുവമ്പാടി മുക്കം തോട്ടുമുക്കം ഭാഗങ്ങളിൽ ഉരുൾപൊട്ടിയതോടെ പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ട നില യിലാണ്

മലപ്പുറം ജില്ലയിൽ എടവണ്ണ കുളപ്പാട് ഉരുൾപൊട്ടി വീട് തകർന്ന് ഒരാൾ മരിച്ചു പട്ടിരി വീട്ടിൽ നിഷയാണ് മരിച്ചത് നാടുകാണിചുരം വഴി സംസ്ഥാനത്തേക്ക് വലിയ വാഹ നങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ചെറു വാഹനങ്ങൾക്ക് വിലക്കില്ല സംസ്ഥാനത്തെ പ്രളയക്കെടുതി പ്രധാനമന്ത്രി നേരിട്ട് സന്ദർശിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സൈന്യത്തെ ഏൽപ്പിക്കണമെന്നും അദ്ദേഹം മലപ്പുറത്ത് പറ ഞ്ഞു രാഹുൽഗാന്ധിയുമായി ഫോണിൽ സംസാരിച്ച അദ്ദേഹം പ്രളയക്കെടുതിമൂലമുണ്ടായ അതീവ ഗുരുതര സാഹ ചര്യം അദ്ദേഹത്തെ ധരിപ്പിച്ചു കേന്ദ്രത്തിൽ നിന്നും പരമാ വധി സഹായം ലഭ്യമാക്കാൻ ഇടപെടണമെന്ന് ചെന്നിത്തല രാഹുൽഗാന്ധിയോട് ആവശ്യപ്പെട്ടു മലപ്പുറത്ത് ദുരന്തം വിതച്ച കരുവാരക്കുണ്ടും നിലമ്പൂരിലെ ദുരിതാശ്ചാസ ക്യാമ്പുകളും രമേശ് ചെന്നിത്തല സന്ദർശിച്ചു കോഴിക്കോട് വയനാട് ജില്ല കളിൽ എത്താൻ കഴിയുന്ന പ്രദേശങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തും

കേരളത്തിലെ പ്രളയ സാഹചര്യത്തിൽ കോൺഗ്രസ് അധ്യ ക്ഷൻ രാഹുൽ ഗാന്ധി ആശങ്കയറിയിച്ചു രക്ഷാ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്താൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്നും അദ്ദേഹം ട്വിറ്ററിൽ അഭ്യർത്ഥിച്ചു

കക്കയം ഡാമിന്റെ ഷട്ടറുകൾ നാലടിയായി ഉയർത്തുമെന്ന് ഡാം സേഫ്റ്റി എക്സിക്യുട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു കുറ്റ്യാടി പുഴയുടെ തീരദേശവാസികളും പൊതുജനങ്ങളും ജാഗ്രത് പാലിക്കണമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി

കൊട്ടിയൂർ കണ്ടവന മേമലക്കുന്നിൽ വിള്ളലുണ്ടായി

വാഴമല യിലും ഉരുൾപൊട്ടി

കണ്ണവം മല യിലും കുരളി മലയിലും ഉരുൾപൊട്ടി

കുറ്റ്യാടി ചുരത്തിനടുത്ത് വയനാട് വാളാംതോട്ടിൽ റോഡി ലേക്ക് മണ്ണിടിയുടകയും മരംവീഴുകയും ചെയ്ത് അതുവഴി ഗതാഗതം തടസ്സപ്പെട്ടു എറണാകുളം ജില്ലയിൽ പെരിയാറിന്റെ തീരത്തെ നിരവധി കുടുംബങ്ങൾ പ്രള യ ക്കെടു തിയിൽപെട്ടു ജില്ലയിലെ പുത്തൻവേലിക്കര മാഞ്ഞാലി അങ്കമാലി ചേന്നമംഗലം ചിറ്റാ രിക്കര പറവൂർ ഭാഗങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാ ണ്

ഇവരെയെല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി

മാഞ്ഞാലി എസ്

ആശുപത്രിയുടെ സമീപ ത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത

ആലുവ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം പൂർണ്ണ മായി വെള്ളത്തിനടിയിലായി ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു പറവൂർ അങ്കമാലി പെരുമ്പാവൂർ പ്രദേശങ്ങളിൽ വെള്ളം കയറി സുരക്ഷാസേനയും സന്നദ്ധ സൃംഘടനകളും കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിക്കൊ ണ്ടിരിക്കുകയാണ്

നിരവധി ട്രെയിനുകൾ തൃശൂരിലും എറണാകുളത്തും മറ്റ് സ്റ്റേഷനുകളിലും നിർത്തിയിട്ടിരിക്കുകയാണ് കൊച്ചി മെട്രോ സർവ്വീസും നിർത്തിവെച്ചു മുട്ടത്തെ പവർ സ്റ്റേഷ നിൽ വെള്ളം കയറിയതിനെത്തുടർന്നാണ് മെട്രോ തടസ്സപ്പെ ട്ടത് പാലക്കാട് മലപ്പുറം ജില്ലകളിലെ നദികളെല്ലാം കരകവി ഞ്ഞൊഴുകുന്നു പാലക്കാട് ജില്ലയിലെ എല്ലാ അണക്കെട്ടുകളും തുറന്നുവിട്ടിരിക്കുകയാണ് മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ കൂടു തൽ തുറക്കുന്നതിനാൽ കൽപ്പാത്തി കണ്ണാടി മേഖലകളിൽ വീണ്ടും വെള്ളം കയറിയേക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നു

പാലക്കാട് തൃശൂർ ദേശീയപാതയിലെ കുതിരാനിൽ ബസ്സുകൾക്കും ലോറികൾക്കും മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണു മണിക്കൂറുകളായി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാ ണ്

കുടുങ്ങിക്കിടക്കുന്നവരിൽ മൊബൈൽ ഉള്ളവരെക്കൊണ്ട് ഈ നമ്പറിൽ പ്പിളിപ്പിക്കണമെന്നും ഇതിൽനിന്ന് സ്ഥലം എവിടെയാണെന്ന് അറിയാൻ കഴിയു മെന്നും അധികൃതർ പറഞ്ഞു

മൂന്നര മുതൽ നാലുമീറ്റർ വർ ഉയരത്തിൽ തിരമാലകൾ ഉയ രാൻ സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോക രുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്ന സാഹ ചര്യത്തിൽ ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് അഭിഭാ ഷകൻ സുപ്രീംകോടതിയെ സമീപിച്ചു വിഷയം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബഞ്ചിന് മുന്നിൽ ഉന്നയ്പിക്കാൻ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നിർദ്ദേശിച്ചു കണ്ണൂർ കണ്ണവം മലയിലും പുരളി മലയിലും ഉരുൾപൊട്ടി വ്യാപക കൃഷിനാശം ഉണ്ടായി ന്യൂഡൽഹി എയിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴി യുന്ന മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു

അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണെന്ന് ആശുപത്രി കേന്ദ്രങ്ങൾ അറിയിച്ചു ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി നേരിൽ കണ്ടിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കുകയാണെങ്കിൽ ഡിസംബറിൽ നാല് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നട ത്താൻ കഴിയുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒ

മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് മിസോറാം രാജ സ്ഥാൻ സംസ്ഥാനങ്ങളിലാണ് ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നട ക്കുന്നത്

പുതുക്കിയ തീയതി പിന്നീട് അറിയി ക്കും

തിരുവ നന്തപുരം എം പി ശശി തരൂർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാര വാഹികൾ അറിയിച്ചു

ഗവൺമെന്റ് തലത്തിൽ നാളെ ചിങ്ങം ഒന്നിന് നടത്താനി രുന്ന കർഷകദിന പരിപാടികളും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്